പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു

ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി റെനിൽ വിക്രമസിംഗെ വീണ്ടും സത്യപ്രതിഞ്ജ ചെയ്തു

ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനൽസിൽ ഇന്ത്യയുടെ പി

സിന്ധുവിന് കിരീടം

ലോക പുരുഷ ഹോക്കി ഫൈനൽ ഇന്ന് കിരീടത്തിനായി നെതർലാന്റ്സും ബെൽജിയവും ഏറ്റുമുട്ടും

ഏകദിന സന്ദർശനത്തിനായി ഉത്തർപ്രദേശിലെ റായ് ബറേലിയിൽ എത്തിയ ശ്രീ മോദി വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു മുൻകാല ഗവൺമെന്റ് രാജ്യത്തിന്റെ വിഭവങ്ങൾ പാഴാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു

തുടർന്ന് നടന്ന പൊതുസമ്മേളനിത്ത് ശ്രീ മോദി അഭിസംബോധന ചെയ്തു

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചടങ്ങിൽ സംബന്ധിച്ചു

പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനൊപ്പം കര വ്യോമ നാവിക സേനാ മേധാവിമാരും അമർ ജവാൻ ജ്യോതിയിൽ ആദരാഞ്ജല്ലികൾ അർപ്പിച്ചു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണമന്ത്രി രാജ്യവർധൻ റാത്തോഡ് തുടങ്ങിയവർ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ട്വിറ്ററിലൂടെ അനുസ്മരിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

റെയിൽവെ മേഖലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസവും പരിശീലനവും സംബന്ധിച്ച് ഇതൊരു വലിയ കാൽവയ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു

ഐ

സി നിരീക്ഷകൻ മല്ലികാ അർജ്ജുൻ ഖ്യൂർഗേ എ

സി ജനറൽ സെക്രട്ടറിയും ഛത്തീസ്ഗഡിന്റെ ചുമതലയുള്ള പി

പുനിയ തുടങ്ങിയവർ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു റായ്പൂരിൽ നാളെ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും

ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചയും നടത്തും ചില സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ച്ചേക്കുമെ ന്നാണ് സൂചന സോലിഹിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത് ഒരു മാസം പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യാ സന്ദർശനം

രാജ്യത്തെ പൊതുകടം ഉയർന്നു നിൽക്കുന്ന പിൽച്ചാർത്തലത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കീയത് ന്യൂഡൽഹിയിൽ എഫ്

ഐ

ഗാർഗ് സാമ്പത്തിക കമ്മി ജി

ഇന്ത്യയുടെ ബൃഹത് സാമ്പത്തിക ഘടനയുടെ ഘടകങ്ങൾ ലോകത്തിൽ മികച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു

ഇത് അഞ്ചാം തവണയാണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി വിക്രമസിംഗേ സത്യപ്രതിഞ്ജ ചെയ്യുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇതിനെ സ്വാഗതം ചെയ്തു ആഗോള താപനത്തിന്റെ പ്രധാന കാരണക്കാരായ സമ്പന്ന രാഷ്ട്രങ്ങൾ അവികസിത രാഷ്യങ്ങളെ ഹരിതാഭമാക്കി്റ്റൻ സഹായിക്കുമെന്നും ഉടമ്പടി വ്യവസ്ഥ ചെയ്യുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രക്തമായ പിന്തുണ ആവശ്യമുള്ള പരിവർത്തന പ്രക്രിയ്ക്യൂടെട്ട അടിസ്ഥാനമാണ് പാരിസ് കരാറിനുള്ള അനുമത്യി ന്ന്ൽകുന്നതിലൂടെ സാധ്യമാകുന്നതെന്ന് യു

നാളെ ഉച്ചയോടെ ആന്ധ്രപ്രദേശ് തീരം കടക്കുമെന്ന് സൂചനയുണ്ട് ഇന്നും നാളെയും ആന്ധ്രപ്രദേശിന്റെ കടൽ തീരത്ത് മത്സ്യബനധം നിരോധിച്ചതായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം ഡ്യൂട്ടി ഓഫീസർ കെ

ശ്രീനിവാസൻ അറിയിച്ചു

നൂറു കോടിരൂപ ചെലവിട്ടു നിർമ്മിച്ചു ഇൌ സ്ഥാപനത്തിന് ശാസ്ത്രീയമായി ഔഷധസ്യങ്ങൾ കൃഷി ചെയ്യാൻ കർഷകരെ സഹായിക്കാൻ കഴിയും ഔഷധസ്യങ്ങളുടെ ആദ്യ ഗവേഷണ കേന്ദ്രമായിരിക്കും ഇതെന്ന് ശിലാസ്ഥാപനവേളയിൽ കേന്ദ്രമന്ത്രി യെശോ നായിക് പറഞ്ഞു ഔഷധ സസ്യകൃഷിയിലൂടെ കർഷകർക്ക് നല്ല വരുമാനമുണ്ടാക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്ന് ശ്രീ

ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരമുള്ള പ്രത്യേക പരിശീലന ക്യാമ്പും ഇരുവരും ഉദ്ഘാടനം ചെയ്തു

സ്റ്റേഡിയത്തിൽ ഹൈദ്രാബാദ് പുസ്തക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളിലെ വായനാശീലം വളർത്തുന്നതിൽ പുസ്തകങ്ങളും പത്രമാധ്യമ ങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാൽ ഇന്റർനെറ്റും ടെലിവിഷനും പ്രചരിച്ചപ്പോൾ വായനാശീലം കുറയുന്ന പ്രവണതയാണ് ഉണ്ടായതെന്നും ശ്രീ ഏപ്പിങ്കയ്യ നായഡു കൂട്ടി ച്ചേർത്തു

പ്രമുഖ ഗുസ്തി താരം യോഗേശ്വർ ദത്തും ക്രിക്കറ്റർ ഗൌതം ഗംഭീറും ചടങ്ങിൽ സംബന്ധിച്ചു

ഈ മത്സരത്തിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക ലാഭം ഇന്ത്യൻ സൈനികരുടെ ആർട്ടിഫിഷ്യൽ ലിംബ് നൽകും

സിന്ധുവിന് കിരീടം ഫൈനലിൽ ജപ്പാൻ താരം നവോമി ഒക്ക് ഹാരെയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീട നേട്ടം

ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനൽസിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സിന്ധു ബാഡ്മ്ലിന്റൺ സീസനൊടുവിൽ മുൻനിര താരങ്ങളെ അണിനിരത്തുടൂർ നട്ടത്തുന്ന ചാമ്പ്യൻഷിപ്പാണ് ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫ്ലൈൻസ്

ഓസീ സിനായി സ്പിന്നർ നഥാൻ ലിയോൺ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി